സർക്കാർ

ആൻഡമാൻ നിക്കോബാർ ആന്ധ്രപ്രദേശ് ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ രോഗ ബാധിതരുടെ എണ്ണത്തിൽ വർദ്ധന രേഖപ്പെടുത്തുന്നുണ്ട്

ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ആരോഗ്യരംഗത്തെ അടിസ്ഥാനസൌകര്യം കൂടുതൽ മെച്ചപ്പെടുത്താനാകുമെന്നും കേന്ദ്ര മന്ത്രി പറഞ്ഞു

കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് തലസ്ഥാനനഗരിയിലെ മദ്യവിൽപ്പന ശാലകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തുടർ ചികിത്സയ്ക്കായി ചെന്നൈ നഗരത്തിൽ ഒരു കോവിഡ് അനന്തര സ്വാസ്ഥ്യ കേന്ദ്രം സ്ഥാപിക്കാനും തമിഴ്നാട് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് അതിനിടെ സംസ്ഥാനത്തെ നഗരപ്രദേശങ്ങളിലെ ലോക്ഡൌൺ ബിഹാർ സർക്കാർ അടുത്തമാസം ആറുവരെ നീട്ടി സർക്കാർ സ്ഥാപനങ്ങൾ പകുതി ജീവനക്കാരെ മാത്രം ഉൾപ്പെടുത്തി പ്രവർത്തിക്കുമെന്നും നീതിന്യായ സ്ഥാപനങ്ങൾ പട്ന ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തുറന്നു പ്രവർത്തിക്കും എന്നും അധികൃതർ വ്യക്തമാക്കി

വിദ്യാർഥികളുടെ ഭാവി ദീർഘനാൾ അനിശ്ചിതാവസ്ഥയിൽ തുടരാനാവില്ലെന്ന് നിരീക്ഷിച്ച കോടതി പരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുമെന്നും വ്യക്തമാക്കി

സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വനം മന്ത്രിമാർ സെക്രട്ടറിമാർ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി നടത്തിയ വെർച്ചൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി

വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി അനുവദിക്കുന്ന തുകയിൽ ധനകാര്യ ശതമാനം വർധന വരുത്തിയിട്ടുണ്ട്

നഗരങ്ങളിലെ വനവൽക്കരണത്തിനും ജലാശയങ്ങളുടെ പുനരുദ്ധാരണത്തിനും കുളങ്ങൾ നിർമിക്കുന്നതിനും കൂടുതൽ പ്രധാന്യം നൽകണം വനൃമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യർക്ക് ശല്യം ചെയ്യുന്നതിന് കുറയ്ക്കാൻ അവയ്ക്ക് വേണ്ട വെള്ളവും ആഹാരവുക് വനത്തിനുള്ളിൽ തന്നെ കണ്ടെത്താനുള്ള പരിപാടികളും ന്നടുപ്പ്റ്റിക്കമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്

വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രോഗബാധിതർക്കും ആരോഗ്യ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും സഹായക്രമായി രീതിയിലാണ് മാർഗനിർദേശങ്ങൾ പുതുക്കിയത്